സംസ്ഥാനത്ത് ഇന്ധനവില പുതിയ ഉയരത്തിൽ

കൂട്ടനാട് മഹാശുചീകരണത്തിന്റ് തുടക്കമായി

സംസ്ഥാനത്തെ പ്രളയബ്ബാധീത പ്രദേശങ്ങൾ കോൺഗ്രസ്സ് അദ്ധ്യക്ഷിൻ രാഹുൽഗാന്ധി സന്ദർശിക്കുന്നു

കെ അദ്ധ്യക്ഷനായി എം

സ്റ്റാലിനെ തെരഞ്ഞെടുത്തു

ഡോളറിനെതിരെ രൂപയുടെ മൂലൃത്തകർച്ച മൂലം ക്രൂഡ് ഓയിൽ ഇറക്കുമതിച്ചെലവ് ഉയർന്നതാണ് വില കൂട്ടാൻ കാരണമെന്ന് എണ്ണക്കമ്പനികൾ വൃക്തമാക്കി

തിരുവനന്തപുരം നിശ്രാഗിന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നാലിന് പ്രസ്ടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയ്ൻ ഉദ്ഘാടനം ചെയ്യും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത മൽസ്യത്തൊഴിലാളികൾക്ക് പ്രശസ്തിപത്രവും മുഖ്യമന്ത്രി സമ്മാനിക്കും

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാർ

താൻ ഇത് നേരത്തെ ചെയ്തുകഴിഞ്ഞ്താണ് ജനപ്രതിനിധികളാണ് മാതൃക കാട്ടേണ്ടതെന്നും വിഎസ് പറഞ്ഞു

അദ്ദേഹം പിന്നീട് ഹെലികോപ്റ്ററിൽ ചെങ്ങന്നൂരിലേക്ക് പോയി ഇവിടത്തെ ദുരിതാശ്ചാസ കൃാമ്പുകൾ സന്ദർശിച്ചു തുടർന്ന് ആലപ്പുഴയിലേക്കു പോയ രാഹുൽഗാന്ധി ആലപ്പുഴ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ മൽസൃത്തൊഴിലാളികളെ അനുമോദിക്കുന്ന ചടങ്ങിലും പങ്കെടുക്കും ചടങ്ങിനു ശേഷം കൊച്ചിയിലേക്ക് തിരിക്കും ആലുവയിലെ ദുരിതാശ്ചാസ കൃാമ്പുകളും ചാലക്കുടിയിലെയും ചേന്ദമംഗലത്തെയും പ്രളയബാധിതപ്രദേശങ്ങളും സന്ദർശിക്കും ഇന്ന് രാത്രി കൊച്ചിയിൽ തങ്ങുന്ന രാഹുൽഗാന്ധി നാളെ കോഴിക്കോട്ടേയ്ക്ക് പോകും അവിടെ നിന്ന് വയനാട്ടിലെത്തുന്ന അദ്ദേഹം പ്രളയത്തിൽ തകർന്ന കോട്ടത്തറ ഗ്രാമം സന്ദർശിക്കും നാളെ ഉച്ചയ്ക്ക് ഡൽഹിയിലേക്ക് മടങ്ങും

കെ യുടെ അദ്ധ്യക്ഷനായി എം

സ്റ്റാലിനെ തിരഞ്ഞെടുത്തു പ്രകാർട്ടി ആസ്ഥാനമായ അണ്ണാ അറിവാലയത്തിൽ ചേർന്ന ഡി എം

ജനറൽ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം സ്റ്റാലിൻ വൈകിട്ട് ചുമതലയേൽക്കും തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരത്തോളം പ്രതിനിധികൾ പങ്കെടുത്ത കൌൺസിലിൽ പുതിയ ട്രഷററായി മുതിർന്ന നേതാവ് ദുരൈമുരുഗനെയും തിരഞ്ഞെടുത്തു

മുഴുവൻ ജില്ലാ സെക്രട്ടറിമാരും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സ്റ്റാലിന്റെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടു

ആഘോഷങ്ങൾ ഒഴിവാക്കി ആചാരപരമായ ചടങ്ങുകൾ മാത്രമാണ് നടക്കുക വളളം കളി മത്സരവും ഒഴിവാക്കിയിട്ടുണ്ട് നാളെ പത്തനംതിട്ട ജില്ലയിലെ അവധി റദ്ധാക്കിയതായി ജില്ലാകളക്ടർ അറിയിച്ചു

തുടർച്ചയായ ്രണ്ടാം ദിവസമാണ് വില വർദ്ധിക്കുന്നത്

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീഡിയോ കോൺഫറൻസിലെ നിർദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം

സ്കൂൾ മുക്കുടം വിജ്ഞാനം എൽ പി പൂസ്കൂൾ എന്നിവ പൂർണമായും തകർന്നിരുന്നു ക്രഇപ്പിടങ്ങളിലെ സ്ഥിതിയെക്കുറിച്ച് ഡി

കൃാമ്പുള്ള സ്കൂളുകളിലും ബുധനാഴ്ച ക്സാസ് തുടങ്ങാനാണ് ശ്രമം

അതീവ അപകടകരമെന്ന് വിലയിരുത്തിയ ഇത്തരം പ്രദേശങ്ങളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കും വാസയോഗ്യമല്ലാത്ത വീടുകളുടെ കൃത്യമായ കണക്കു നൽകുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്നും ഇടുക്കി ജില്ലാതല ദുരിതാശ്ചാസ അവലോകന യോഗം വിലയിരുത്തി വൻനാശമുണ്ടായ സ്ഥലങ്ങളിലെ ജനങ്ങളെ സുരക്ഷിതസ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ സംഘടനകളിൽനിന്നും വ്യക്തികളിൽനിന്നും ഭൂമി സ്വീകരിക്കും ലഭ്യമായ ഇടങ്ങളിൽ ഗവൺമെന്റ് തന്നെ ഭൂമി കണ്ടെത്തും ക്യാമ്പുകളിൽ ണ്ണിന്റ് മടങ്ങുന്നവർക്കു ഉടൻ പണം അക്കൌണ്ടുകളിൽ ലഭ്യമാകുമെന്ന് റവന്യൂമന്ത്രി ഇ

ജീവൻബാബു പറഞ്ഞു

സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിന് ഊർജ്ജം പകർന്ന കർമ്മയോഗി യായിരുന്നു അയ്യങ്കാളി

തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദൃത്തെ പണിമുടക്ക്സമരം നയിച്ചത് അയ്യങ്കാളിയാണ്

ദളിതർക്ക് പൊതുവഴികളിൽ സഞ്ചാര സ്വാതന്ത്യം അനുവദിച്ച് കിട്ടാൻ അയ്യങ്കാളി നടത്തിയ ശ്രമങ്ങൾ ഏറെ ശ്രദ്ധിയ്ക്കപ്പെട്ടു സാധുജന പരിപാലനയോഗം എന്ന സംഘടനയും അദ്ദേഹം രൂപീകരിച്ചു

അധസ്ഥിത വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനായി നടത്തിയ സമരത്തിന്റെ മുഖ്യ ആസൂത്രകനും അദ്ദേഹം ആയിരുന്നു

്പുലയരുടെ രാജാവ് എന്നാണ് ഗാന്ധിജി അിയ്ക്കാളിയെ വിശേഷിപ്പിച്ചത്

കെ ബാലകൃഷ്ണൻ അന്തരിച്ചു

ഫിലിം സെൻസർ ബോർഡ് അംഗം ആകാശവാണി ഉപദേശക സമിതി അംഗം കാലിക്കറ്റ് സർവ്വകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്

ഇത് സംബന്ധിച്ച കണക്കുകൾ വിവിധ വകുപ്പുകൾ ജില്ലാ കളക്ടർ പി ബി നൂഹിന് സമർപ്പിച്ചു

ഐ

നാളെ കണ്ണൂർ വനിതാ ജയിൽ സന്ദർശിക്കും ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കഴിഞ്ഞ വെളളിയാഴ്ചയാണ് സൌമൃയെ ജയിലിനു പുറത്തെ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്

കാങ്കൂൽ ടൌണിലെ റേഷൻ വ്യാപാരിയാണ് മരിച്ച കുഞ്ഞിക്കണ്ണൻ

ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾ തുടരുന്നതിനാലാണ് അനുമതി നിഷേധിച്ചതെന്ന് ജില്ലാ കളക്ടർ ടി

പുലികളി ചടങ്ങായി മാത്രം നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു